കൊല്ലത്തും തിരു വനന്തപുരത്തും പൊതു പരിപാടികളിൽ അദ്ദേഹം പങ്കെ ടുക്കും നാലിന് തിരുവനന്തപുരം വ്യോമസേനാ ടെക്നി ക്കൽ എരിയയിൽ വിമാനം ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലിക്കോപ്റ്ററിൽ കൊല്ലത്തേക്ക് പോകും

ക്ഷേത്ര ദർശനത്തിന് ശേഷം എട്ട് മണിയോടെ വ്യോമസേനാ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും കൊല്ലം ബ്രൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പ്പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി അൽഫോണൻസ് കണ്ണന്താനം മന്ത്രി മാരായ ജി സുധാകരൻ

മേഴ്സിക്കുട്ടിയമ്മ കെ രാ ജു എംപിമാരായ എൻ

പ്രേമചന്ദ്രൻ സുരേഷ് ഗോപി വി മുരളീധരൻ കെ സോമപ്രസാദ് എംഎൽഎമാരായ ഒ രാജഗോപാൽ മുകേഷ് തുടങ്ങിയവർ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊല്ലത്തും തിരുവനന്തപുരത്തും ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തി യിട്ടുണ്ട്

കേസ് കേൾക്കുന്ന ബെഞ്ചിലെ അംഗം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡി ക്കൽ അവധിയിലായതിനാലാണ് ഇതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി

ബെഞ്ചിലെ അംഗം മെഡിക്കൽ അവധിയിലാണെന്നും അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ പരിശോധിക്കുന്ന ബെഞ്ച് ചേരുമെന്നുകാര്യത്തിൽ ഉറപ്പില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു

പത്ത നംതിട്ട ജില്ലാഭരണകൂടവും പൊലീസും തമ്മിൽ നട ത്തിയ ചർച്ചയിലാണ് നിരോധനാജ്ഞ നീട്ടേണ്ടെന്ന് തീരുമാനിച്ചത് ഇതോടെ ശബരിമലയിലെ സംഘർഷ ങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചു ഇതേസ മയം അടിയന്തരസാഹചര്യമുണ്ടായാൽ വീണ്ടും നിരോ ധ നാജ്ഞ പ്രഖ്യാ പിക്കു മെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

സുരേന്ദ്രന് ആവശൃമെങ്കിൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വൃക്തമാക്കി മകരവിളക്കിന് ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവുതേടിയാണ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് ഉപാധിയോടെയാണ് നേരെത്ത ഹൈക്കോട്ടതി സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരുന്നത്

ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബഞ്ചാണ് കേ സ് പരിഗണിക്കുന്നത്

ക്ഷേത്ര ഭരണത്തിന് ഗുരുവായൂർ മാതൃകയിൽ ബോർഡ് രൂപീകരിക്കാമെന്ന് കഴിഞ്ഞ മാർച്ചിൽ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു

അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്

ഇവർ ഓസ്ട്രേ ലിയയിലേക്ക് പോയതായി സ്ഥിരീക് രിച്ചിട്ടുണ്ട് മനുഷ്യക്കടത്തിന് പിന്നിൽ പൻ മാഫിയ പ്രവർത്തിക്കുന്നതായി അന്വേഷ്ണ സംഘത്തിന് വിവരം ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ലലലലലലലലലലലല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംബ ന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ന്യൂഡൽഹിയിൽ നാളെ കോൺഗ്രസ് ഹൈക്കമാൻഡു മായി ചർച്ച നടത്തും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമച ന്ദ്രൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹ്നാൻ പിട്ടു സിന്റെ സിന്റെ പ്രചാരണ് സിതി കെ തലവൻ കെ മുരളീധരൻ എന്നിവരെയാണ് ഹൈക്ക മാൻഡ് ചർച്ചയ്ക്കായി വിളിച്ചത് കേരളത്തിലെ സാഹ ചര്യങ്ങൾ ഇവർ നേതൃത്വത്തെ ധരിപ്പിക്കും ഇന്ന് കരസേനാദിനം കരസേനയുടെ മനക്കരു ത്തിലും നിശ്ചയദാർഢ്യത്തിലും രാജ്യം അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു അവരുടെ ധീരതയ്ക്കും വീരൃത്തിനും മുന്നിൽ നമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്ന ഒരു രാജ്യം ഭീകര സംഘടന കൾക്ക് പിന്തുണ നൽകിവരികയാണെന്ന് അദ്ദേഹം കര സേ നാദിനത്തിന്റെ ഭാഗമായി സൈനികരെ അഭി സം ബോധന ചെയ്യവെ ന്യൂഡൽഹി യിൽ പറഞ്ഞു

രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നില നിർത്താൻ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആവിഷ്ക്കരി ച്ചതായും ജനറൽ റാവത്ത് അറിയിച്ചു അതിർത്തി കാക്കു ന്നതിൽ ഇന്ത്യൻസേന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറ ല്ലെന്നും റാവത്ത് പറഞ്ഞു

സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് ശാന്തികവാടത്തിൽ നടക്കും ഇന്നലെ രാത്രി എട്ടുമണിയോടെ ചെന്നൈ യിലായിരുന്നു ലെനിൻ രാജേന്ദ്രന്റെ അന്ത്യം കെഎസ്ആർടിസി ജീവനക്കാർ നാളെ തുടങ്ങാനിരിക്കുന്ന പണിമുടക്ക് ഒഴിവാക്കാൻ ട്രേഡ് യുണിയൻ നേതാക്കളുമായി കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി നാളെ രാവിലെ ചർച്ച നടത്തും പ സംയുക്ത ട്രേഡ് യൂണിയൻ നാളെ അർധരാത്രി മുതലാണ് അനിശ്ചിതകാല പണിമുടക്കിന് നോട്ടീസ് നൽകിയത്

ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടു കളെ തുടർന്ന് ഇന്നലെ വൈകീട്ടാണ് അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് രവിശങ്കർ പ്രസാ ദിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചുവരിക യാണ്

തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഓസ്ട്രേലിയ പിന്നീട് കരുത്ത് വീണ്ടെടുക്കയായിരുന്നു

ലലലലലലലലലലലല ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ബഹ്റൈനിനോട് തോറ്റ് പുറത്തായതിന് പിന്നാലെ ഇന്ത്യൻ കോച്ച് സ്റ്റീഫൻ കോൺസ്റ്റ്റൈൻ സ്ഥാനം രാജിവെച്ചു

കലകലകലകലകലകലക വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ നാലാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരളത്തിന്റെ നില പരുങ്ങലിൽ

ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ ഗവൺമെന്റിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു

ഗവൺമെന്റ് നിയോഗിച്ചു പരിശോധനാസമിതിയുടെ നിർദ്ദേശങ്ങൾ പാലി ക്ക ണ മെന്നും ഹർജി യിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

കോടതി ഉത്തരവുണ്ടായിട്ടും ഫ്ളക്സ് ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്തതിന് അഡക്കറ്റ് ജനറൽ നേരിട്ട് വിശദീകരണം നല്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു വേണ്ടിവന്നാൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചുവരുത്താനും മട്ടിക്കില്ലെന്ന് ഡിവിഷൻബെഞ്ച് വൃക്തമാക്കി

അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വില യിൽ വന്ന മാറ്റമാണ് ഇന്ധനവില വർദ്ധനയ്ക്ക് കാര ണം

എടപ്പാൾ പട്ടാമ്പി റോഡിൽ സജ്ജമാക്കുന്ന വേദിയിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർമാണോദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മന്ത്രി കെ

എടപ്പാളിലെ ഗതാഗതക്കുരുക്കഴിക്കാനായി കോഴിക്കോട് തൃശ്ശൂർ പാതയ്ക്കു മുകളിലൂടെയാണ് മേൽപാലം പണിയുന്നത്

കോരപ്പുഴ പാലം പൊളിച്ചുപണിയുന്ന സാഹചര്യത്തിൽ യാത്രാദുരിതം പരിഹരിക്കുന്നതിന് എലത്തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് എം കെ രാഘവൻ എം പി റെയിൽവെ അധികൃ തരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി